പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ ബിസിനസ് മേധാവികളോട് അഭ്യർത്ഥിച്ചു

ജെ

വീടുകളിൽ ചെന്ന് സന്ദർശിച്ച് ആദരവ് അർപ്പിക്കുന്ന പദ്ധതിക്ക് ഇന്ന് കേരളത്തിൽ തുടക്കമാകും

ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റിന് ഇന്ന് ഇൻഡോറിൽ തുടക്കമാകും

പതിനൊന്നാം ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ബ്രസീലിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പരിധിയില്ലാത്ത അവസരങ്ങളാണ് രാജ്യം കാത്തുവച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആഗോള സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോഴും ബ്രിക്സ് രാഷ്ട്രങ്ങൾ മികച്ച മുന്നേറ്റം നടത്തി

ലക്ഷക്കണക്കിന് ആളൂക്കുള്ള് ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിക്കാനും സാങ്കേതിക രംഗത്ത് മികച്ചിമു്ന്നേറ്റം നടത്താനും ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഷം പറഞ്ഞു

ഉച്ചക്കോടിയുടെ ഭാഗമായി വിവിധ രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂട്ടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഭരണസഖ്യത്തിലെ കക്ഷികളായ ബിജെപിയും ജൻനായക് ജനത പാർട്ടിയും മന്ത്രിമാരെ തീരുമാനിച്ചു

എക്സ് മീഡിയ അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രി പി

പ്രത്യേക ജഡ്ജി അജയ് കുമാർ കുഹാറാണ് കസ്റ്റഡി കാലാവധി നീട്ടാൻ നിർദ്ദേശം നൽകിയത്

വിഷയത്തിൽ കൃത്യമായ പഠനം നടത്തി അടുത്ത മാസം മൂന്നിന് കോടതിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കണം അതേസമയം ഡൽഹിയിലെ വായുമലിനീകരണം ഗുരുതരമായ നിലയിൽ തന്നെ തുടരുകയാണ്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചാഗ ഭരണഘടനാ ബഞ്ചിന്റേതാണ് വിധി

എന്നാൽ നിയമനത്തിനായി കൊളീജിയം ശുപാർശ ചെയ്യുന്ന ജഡ്ജിമാരുടെ പേരുകൾ മാത്രമേ പുറത്തുവിടാനാകൂ എന്നും ഇതിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമാക്കാനാവില്ലെന്നും അഞ്ചംഗ ബഞ്ച് ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് ഓഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വിടുമ്പോൾ സുതാര്യതയ്ക്കൊപ്പം തന്നെ സ്വകാര്യതയും പരിഗണിക്കേണ്ടതുണ്ടെന്നും പരമോന്നത കോടതി അഭിപ്രായപ്പെട്ടു

അഞ്ചംഗ ഭരണഘടനാ ബഞ്ച് രാവിലെ പത്തരയോടെ തീർപ്പുകൽപിക്കും

ഈ വിധി പുനപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അമ്പതിലേറെ ഹർജികളാണ് സുപ്രീംകോടതിയിൽ എത്തിയത്

ജഡ്ജിമാരായ റോഹിൻടൻ നരിമാൻ എ

ഖാൻവിൽക്കർ ഡി

ചന്ദ്രചൂഡ് ഇന്ദു മൽഹോത്ര എന്നിവരാണ് ഭരണഘടനാ ബഞ്ചിലെ മറ്റ് അംഗങ്ങൾ

സുപ്രീംകോടതിയുടെ വിധി എന്തുതന്നെയായാലും ഗവൺമെന്റ് അംഗീകരിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ നിയമസഭയെ അറിയിച്ചു അതേസമയം മണ്ഡല പൂജയ്ക്കായി ശബരിമല നട മറ്റെന്നാൾ തുറക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഓസ്കർ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ചിത്രങ്ങളിലെ പ്രത്യേക പ്രദർശനം ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

സ് കൂളുകളിൽ നിന്നു വിദ്യാർത്ഥികളുടെ ചെറുസംഘം അദ്ധ്യാപകരോടൊന്നിച്ച് സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ശാസ്ത്ര കലാ കായിക സാഹിത്യരംഗത്തെ പ്രതിഭകളെ സന്ദർശിച്ച് ആദരവർപ്പിക്കുന്ന പദ്ധതിയാണിത്

ഇന്ന് രാവിലെ പേരൂർക്കട ഗവൺമെന്റ് ഹയർസെക്കണ്ടറി സ്കൂളിലെ കുട്ടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി സി രവീന്ദ്രനാഥ് എന്നിവരോടൊപ്പം ചരിത്രപണ്ഡിതനായ ഡോ

സുഗതകുമാരി അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരേയും കുട്ടികൾ സന്ദർശിക്കും

എല്ലാ വിഭാഗം ജനങ്ങളിലും ലഹരിവിരുദ്ധ മനോഭാവം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടാണ് തീവ്രയത്ന ബോധവത്ക്കരണ പരിപാടി നടത്തുന്നത്

ഇൻസുലിന്റെർജൂണനിലവാരവും സുരക്ഷിതത്വവും ലഭ്യതയും ഉറപ്പാക്കാൻ സംവിധാനും ഏർപ്പെടുത്തിയിട്ടുണ്ട്

എസ് നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ പുറത്ത് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് നടപടി സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന സഭാ ഇന്റലിജൻസ് കമ്മിറ്റി മുൻപാകെയാണ് ഉക്രെയിനിലെ ആക്ടിങ് അമേരിക്കൻ അംബാസിഡറായ വില്യം ടെയിലറുടെ മൊഴി

ട്രംപ് ഉക്രെയിൻ അധികൃതരുമായി ടെലഫോണിൽ രഹസ്യ സംഭാഷണം നടത്തുന്നത് കേട്ടെന്നാണ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ആരോപണം അസംബന്ധമാണെന്ന് ട്രംപ് ആരോപിച്ചു

തുടർച്ചയായി രണ്ടാം ദിവസവും ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ഇസ്രയേലിനു നേർക്ക് ഹമാസ് ഏതാനും റോക്കറ്റ് തൊടുത്തു ഇതേതുടർന്ന് ഗാസാ മുനമ്പിൽ ഇസ്രയേൽ രൂക്ഷമായ വ്യോമാക്രമണം നടത്തി

എൻ പ്രതിനിധി നിക്കോളായ് മ്ജദെക്കോവ് ഇന്നലെ കെയ്റോയിൽ എത്തിയിട്ടുണ്ട്

എസും ഈജിപ്തും പ്രശ്നത്തിൽ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

പിങ്ക് നിറത്തിലെ ബോൾ ആദ്യമായി ഉപയോഗിക്കുന്ന മത്സരം കൂടിയാണ് ഇന്നത്ത്ത്

രാജധാനി എഫ്

റെയിൻബോ ചാനലുിക്കുളിലും കമന്ററികൾ കേൾക്കാം

ഇത്ത്രുണ്ടാം തവണയാണ് ഹോൾക്കാർ ക്രിക്കറ്റ് സ്റ്റേഡിയം ടെസ്റ്റ് മത്സരത്തിന്റു വേദിയാകുന്നത്

മണിപ്പൂരിനെയും ത്രിപുരയെയുമാണ് പരാജയപ്പെടുത്തിയത് തമിഴ്നാടിനോട് തോറ്റു

ശനിയാഴ്ച മാങ്ങാട്ട് പറമ്പിലെ യൂണിവേഴ്സിറ്റി സിന്തറ്റിക്ക് ഗ്രൌണ്ടിലാണ് കായികോത്സവം ആരംഭിക്കുന്നത്